ജെ പി സ്ഥാനാർഥി പട്ടിക ത്യാറാക്കാൻ കോട്ടയത്ത് കോർ കമ്മിറ്റി ചേരും

കോൺഗ്രസ് സ്ഥാനാർഥികളെ തീരുമാനിക്കാൻ ന്യൂഡൽഹിയിൽ സ്ക്രീനിങ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും

എ സ്ഥാനാർഥികളെ തീരുമാനിക്കാൻ ചർച്ചകൾ പുരോഗമിക്കു കയാണ് ബിജെപി കോർ കമ്മറ്റി ഇന്ന് കോട്ടയത്ത് ചേർന്ന് പട്ടിക തയാറാക്കും

ഏപ്രിൽ നാല് വരെ പത്രിക നൽകാം അഞ്ചാം തീയതി സൂക്ഷ്മ പരിശോധന നടക്കും ഏപ്രിൽ എട്ട് വരെ പത്രിക പിൻവലിക്കാം

മറ്റ് മൂന്നിടത്ത് ഉപ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടത്തില്ല കേരളത്തിൽ മഞ്ചേശ്വരത്തെ ഉപതെരഞ്ഞെടുപ്പ് ഹൈക്കോടതിയിൽ കേസ് നില നിൽക്കുന്നതിനാൽ ഇപ്പോൾ നടത്തില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീ ഷൻ അറിയിച്ചു ജമ്മുകശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പി നൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തില്ലെന്ന് കമ്മീഷൻ വ്യക്ത മാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ പോളിംഗ് ബൂത്തുകളി ലും വിവിപാറ്റ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചായിരിക്കും വോട്ടെ ടുപ്പ്

ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം ഇല്ലെന്ന് ഉറപ്പാക്കാൻ യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ വിവിപാറ്റ് സ്ളിപ്പുകളുമായി ഒത്തുനോക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി കൾ ആവശ്യമുന്നയിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ നിലവിൽ വന്ന മാതൃകാ പെരു മാറ്റ ചട്ടം കർശനമായി പാലിക്കാൻ എല്ലാ നിയമസഭാ മണ്ഡല ങ്ങളിലും നിരീക്ഷണ സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെ ടുത്തി ഓരോ മണ്ഡലത്തിലും രണ്ട് ആന്റി ഡീഫേഴ്സ്മെന്റ് സ്കാഡുകളെയും പെരുമാറ്റ ചട്ട നിരീക്ഷണ സംഘത്തെയും നിയോഗിച്ചു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ പ്രചാരണ സാമ ഗ്രികൾ സ്ഥാപിക്കാൻ സമ്മതപത്രം മുൻകൂറായി വാങ്ങിയിരിക്ക ണം പൊതുസ്ഥലങ്ങളിലെ പോസ്റ്ററുകൾ ബാനറുകൾ ചുവരെഴു ത്തുകൾ എന്നിവ രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർഥികളോ നീക്കം ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം ഇതിനായി നിയോഗിച്ച പ്രത്യേക സ്കാഡ് പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യുകയും അതിന്റെ ചെലവ് രാഷ്ട്രീയ പാർട്ടിയുടെയോ സ്ഥാനാർഥിയുടെയോ തെര ഞ്ഞെടുപ്പ് കണക്കിൽ ഉൾപ്പെടുത്തുന്നതുമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യജ വാർത്തകളും അവഹേളനപര മായ പോസ്റ്റുകളും പ്രചരിക്കുന്നത് തടയാൻ സമൂഹ മാധ്യമങ്ങൾ സംവിധാനമേർപ്പെടുത്തണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ നിർദേശിച്ചു മുൻകൂർ അനുമതി പത്രത്തോട് കൂടിയ രാഷ്ട്രീയ പരസ്യങ്ങൾ മാത്രമേ പ്രസിദ്ധീകരിക്കാവൂ സമൂ ഹ മാധ്യമങ്ങളിലെ പ്രചാരണത്തിന് വരുന്ന ചെലവും തിരഞ്ഞെടു പ്പ് ചെലവിൽ ഉൾപ്പെടുത്തണമെന്നും കമ്മീഷൻ നിർദേശിച്ചു

എഐസിസി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണു ഗോപാൽ മുകുൾവാസ്നിക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല കെ

സിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻമുഖ്യ മന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരടക്കം നേതാക്കളെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് സ്ഥാനാർഥികളെ തീരുമാനിക്കാൻ ബിജെപി കോർകമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും

അതിനു ശേഷമായിരിക്കും സ്ഥാനാർഥി പ്രഖ്യാപനം ബിഡിജെഎസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് ഡൽഹി യിൽ ബിജെപി അധ്യക്ഷൻ അമിത്ഷായുമായി കുടിക്കാഴ്ച നട തെരഞ്ഞെടുപ്പിൽ തുഷാർ മത്സരിക്കണമെന്ന ആവശ്യ ത്തും ത്തിലും മറ്റു സ്ഥാനാർഥികളുടെ കാര്യത്തിലും ഇതോടെ തീരുമാ നമായേക്കുമെന്നാണ് സൂചന ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന നേതൃ യോഗം ഇന്ന് കോ ഴിക്കോട്ട് ചേരും ഇടതുമുന്നണി സീറ്റ് നൽകാത്തതിനെതിരെ പാർ ട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത് സീറ്റ് ലഭിക്കാത്തത് നേതൃത്വത്തിന്റെ കഴിവുകേടാണെ ന്ന് എൽജെഡി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പങ്കാളിത്തം ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർഥിച്ചു പരമാവധി കന്നി വോട്ടർമാരും വോട്ടെടുപ്പിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം ടിറ്ററിൽ ആവശ്യപ്പെട്ടു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർഥികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആശംസകൾ നേർന്ന നരേന്ദ്രമോദി രാജ്യത്തിന്റെ വികസനവും ശാക്തീകരണവും എല്ലാവരുടെയും ലക്ഷ്യമായി മാറണമെന്നും നിർദേശിച്ചു ബിജെപിയും കോൺഗ്രസും സിപിഐഎമ്മും ഉൾപ്പെടെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തു ജനാധിപത്യ സംവിധാനത്തിൽ സ്വതന്ത്രമായും നിഷ്പക്ഷമായും വോട്ട് ചെയ്യാൻ രാജ്യത്ത് സാഹചര്യമുണ്ടെന്ന് പാർട്ടി നേതാക്കൾ വ്യക്തമാക്കി തമിഴ് നാട്ടിൽ വിജയകാന്തിന്റെ ഡി എം

കെ അണ്ണാഡിഎം കെ ബി ജെ പി പിഎംകെ സഖ്യത്തിൽ ചേർന്നു

സഖ്യത്തിൽ പുതിയ തമിഴകം എ ഐ

ആർ സി തുടങ്ങിയ കക്ഷികളുമുണ്ട്

എം

കെ അണ്ണാ ഡിഎം കെയെ പിന്തുണയ്ക്കാനും ധാരണയായി ട്ടുണ്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് പത്മ അവാർഡുകൾ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും രാഷ്ട്രപതി ഭവനിലാണ് അവാർഡ് ദാന ചടങ്ങ്

ശേഷി ക്കുന്നവർ ഈ മാസം തന്നെ സംഘടിപ്പിക്കുന്ന മറ്റൊരു ചടങ്ങിലാ യിരിക്കും പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നത് കേരളത്തിൽ നിന്ന് സംഗീതജ്ഞൻ കെ ജി ജയൻ നടൻ മോഹൻലാൽ സ്വാമി വിശുദ്ധാനന്ദ നമ്പി നാരായണൻ കെ കെ മുഹമ്മദ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത് ജമ്മു കശ്മീരിലെ പുൽവാമ ജില്ലയിൽ സുരക്ഷാ സേന മൂന്ന് ഭീകര പ്രവർത്തകരെ വധിച്ചതായി സേനാകേന്ദ്രങ്ങൾ അറിയിച്ചു ത്രാൽ മേഖലയിലെ പിംഗ്ലീഷ് പ്രദേശത്ത് തെരച്ചിൽ നടത്തിയ സൈനികർക്ക് നേരെ ഭീകരർ വെടിവെക്കുകയായിരുന്നു പ്രത്യാ ക്രമണത്തിലാണ് മൂന്ന് പേർ മരിച്ചത്

മറ്റന്നാൾ ഡൽഹിയിലാണ് അവസാ ന ഏകദിനം പത്ത് ദിവസത്തെ ഉത്സവത്തിന് ശബരിമലയിൽ ഇന്ന് വൈകീട്ട് നടതുറക്കും നാളെ രാവിലെ തന്ത്രി കണ്ഠരര് രാജീവരരുടെ നേതൃ ത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റും പ്രാസാദ ശുദ്ധിക്രിയകളും ബിംബ ശുദ്ധിക്രിയകളും ഇന്നും നാളെയുമായി സന്നിധാനത്ത് നട ക്കും

ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവം ഇന്ന് കുത്തിയോട്ട സംഘങ്ങൾ ഇന്നു പുലർച്ചെ മുതൽ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു വൈകീട്ടോടെ കെട്ടുകാഴ്ചകളുടെ എഴുന്നള്ളിപ്പ് നടക്കും

സൂര്യതാപം വർധിക്കുന്ന സാഹചര്യത്തിൽ കർഷകരും കർഷക തൊഴിലാളികളും അതീജ ജാഗ്രത പുലർത്തണമെന്ന് കൃഷി വകുപ്പ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി

ശരീരത്തിൽ പൊള്ളലിന്റെ ചുവന്ന പാടുകളോ അസ്വാഭാ വിക ലക്ഷണങ്ങളോ ഉണ്ടായാൽ ഉടൻ വൈദ്യ സഹായം തേടേ ണ്ടതാണ് ഈ മാസവും അടുത്ത മാസ്പവും താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രത തുടരണമെന്നും കൃഷിവകുപ്പ് ആവശ്യപ്പെട്ടു

ഭാരതീയ ചിന്തയും ആത്മീയതയുടെ ആർദ്രഭാവങ്ങളും നിറഞ്ഞ കൃതിയാണ് ജ്ഞാനപ്പാനയെന്ന് സാഹിത്യകാരൻ മുണ്ടൂർ സേതു മാധവൻ അഭിപ്രായപ്പെട്ടു പൂന്താനം സാഹിത്യോത്സവത്തിന്റെ ഭാഗ മായി അങ്ങാടിപ്പുറത്ത് സംഘടിപ്പിച്ച സാംസ്കാരിക സദസ് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു സേതുമാധവൻ കുടുംബശ്രീ വയനാട് ജില്ലാ മിഷനും ഡി ടി

സിയും സംയുക്ത മായി എത്നിക് ഡെലീഷ്യ ടേക്ക് എ ബ്രേക്ക് ടൂറിസം കിയോസ് ക് ആരംഭിച്ചു അമ്പലവയലിൽ പട്ടികവർഗ സംരംഭമായാണ് ടൂറി സം കിയോസ്ക് തുടങ്ങിയത് നാടൻ ഭക്ഷണ വിഭവങ്ങളുമായി വ ഴിയാത്രക്കാരായ സഞ്ചാരികൾക്ക് വിശ്രമിക്കാനായാണ് ടൂറിസം കി യോസ്ക് ഒരുക്കിയിരിക്കുന്നത്

രണ്ട് വർഷത്തിനകം മലയോര ഹൈവേയുടെ നിർമാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്